പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിലും സിൽഗുരിയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു എൻ ഡി

തമിഴ്നാട്ടിലെ വിലയിരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സംഘം ഇന്ന് സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി

സി അധ്യക്ഷൻ രാഹൂൽഗാന്ധി ഇന്ന് രാത്രി കോഴിക്കോടെത്തും നാളെ വയനാട്ടിൽ പത്രിക സമർപ്പിക്കും

സിന്ധുവും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ കടന്നു

ദേശീയ രാഷ്ട്രീയ പാർട്ടികളുട്ടെ ന്നേതാക്കൾ റാലികളിൽ പങ്കെടുത്ത് വോട്ടർമാരുടെ പിന്തുണ്ട് ഊപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിശദാംശങ്ങളുമായി കീലിതാ സുനു

പാവങ്ങൾ ക്കായി കൊണ്ടുവന്ന കേന്ദ്രപദ്ധതികൾ തടഞ്ഞു വച്ച് ദീദീ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഫലം പാവപ്പെട്ട വർക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഭീകരവിരുദ്ധ പോരാട്ടത്തിനായി കൊണ്ടുവന്ന സായുധ സേനാ പ്രത്യേകാധികാര നിയമത്തിൽ മാറ്റം വരുത്തുമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ പ്രഖ്യാപനത്തെ അദ്ദേഹം വിമർശിച്ചു

മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് പത്രികാസമർപ്പണ ത്തിനുള്ള അവസാന ദിനം നാളെയാണ് സൂക്ഷ്മപരിശോധന മറ്റന്നാൾ നടക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട്ടിലെ ഒഴിവുള്ള നാല് നിയമസഭാ സീറ്റുകളിലേക്കുള്ള കൂള് പ്പൂർത്തരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള് ്രാഷ്ട്രീയ പ്രതിനിധികൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു

തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനധികൃത പണം വിതരണം തടയാനായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവർ കമ്മീഷനോട് ആവശൃപ്പെട്ടു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ജില്ലാ പൊലീസ് സൂപ്രണ്ടുമാർ എന്നിവരുമായി കമ്മീഷൻ വിശദമായ ചർച്ചകൾ നടത്തും സംസ്ഥാന ചീഫ് സെക്രട്ടറി പൊലീസ് മേധാവി എന്നിവരുമായി കമ്മീഷൻ നാളെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തും

ഡി പി അധ്യക്ഷയുമായ മെഹബൂബ മുഫ്തി അനന്ത്നാഗ് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രശ്നബാധിതമായി കരുതപ്പെടുന്ന മണ്ഡലത്തിൽ മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്

ഉത്തര കാശിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

സായുധ സേനാംഗങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്ന ഒരേ റാങ്ക് ഒരേ പെൻഷൻ പദ്ധതി നടപ്പാക്കിയതും എൻ

ഉത്തരാഖണ്ഡിലെ ചാർധാം ക്ഷേത്രത്തി ലേക്കുള്ള റോഡുകൾ ആധുനികവൽകരിച്ചത് നരേന്ദ്രമോദി ഗവൺമെന്റാണ്

അമിത് ഷാ കുറ്റപ്പെടുത്തി

കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നാളെ രാവിലെ ഹെലികോപ്ടർ മാർഗ്ഗം കൽപ്പറ്റയിൽ എത്തുന്ന രാഹുൽ ഗാന്ധി വരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് എൻ

ജിയുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്

വയനാട്ടിലെ എൻ

സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പളളി ഇന്ന് പത്രിക സമർപ്പിച്ചു

ഡി

റിപ്പോർട്ടിൽ പറയുന്നു

ഡി ബി പ്രവചിക്കുന്നത്

ഹെലികോപ്ടർ വിൽപ്പന ഇന്ത്യ യു എസ് നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള അമേരിക്കൻ വിദേശനയത്തെ സഹായിക്കു മെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിജ്ഞാപനത്തിൽ പറയുന്നു വിൽപ്പന പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തില്ലെന്നും പ്രസ്താവനയിൽ വൃക്തമാക്കിയിട്ടുണ്ട്

ഔഷധ നിർമ്മാണ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിലെ വൻ കുതിപ്പാണ് ഈ നേട്ടത്തിന് പിന്നിൽ

ടി ഐ യ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വാണിജ്യ മന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു

പലിശ നിരക്കുകളിൽ മാറ്റം വന്നേക്കും

ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ദൈമാൂസ വായ്പാ നയമാണ് നാളെ പ്രഖ്യാപിക്കുന്നത്

സ്ഥാപീനത്തിലെ അഴിമതിയും പിൻവാതിൽ നിയമനവും തടഞ്ഞ് പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താനുള്ള പ്രധാന നടപടിയാണിത് കോർപ്പറേഷന്റെ നിരവധി കരാറുകളെ കുറിച്ചും പ്രവർത്തനത്തെ കുറിച്ചും ധാരാളം പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കാൻ ഗവൺമെന്റ് നേരത്തെ സമിതിയെ നിയോഗിച്ചിരുന്നു നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയ കമ്മിറ്റി കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾ ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തു

ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തക രോട് സംസാരിക്കുകയായിരുന്നു അവർ സായുധ സേനാ വിഭാഗങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകുന്ന നിയമം നീക്കം ചെയ്യുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പരാമർശത്തെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ നിയമം നീക്കം ചെയ്താൽ അത് സായുധ സേനാ വിഭാഗങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു

വിഷയത്തിന്മേലുള്ള റിപ്പോർട്ട് അമിക്കൂസ് ക്യൂറി ജേക്കബ് പി

ഡാം മാനേജ്മെന്റിന് പാളിച്ച പറ്റിയോ ് എ് ണ് അന്വേഷിക്കാൻ ഡാം മാനേജ്മെന്റ് വിദഗ്ധരും കാല്പ്പ്പസ്ഥാ വിദഗ്ധരും ചേർന്നുള്ള സമിതി രൂപീകരിക്കണമെന്നും ്റിപ്പോർട്ടിൽ പറയുന്നു പല ഡാമുകളും മാനദണ്ഡങ്ങൾ പാലിച്ചല്ല തുറന്നതെന്ന റിപ്പോർട്ടും ഇതോടൊപ്പമുണ്ട് ക്കുന്നത്ത് മഴയ്ക്കൊപ്പം അപ്രതീക്ഷിതമായി ഡാമുകൾ കൂടി തുറ്ന്നതാണ് പ്രളയത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പ്രളയത്തിനിടെ ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരുകൂട്ടം ഹർജിയിലാണ് ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്

സിന്ധുവും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിലേക്ക് കടന്നു

ഇന്നലെ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന് എതിരെ രാജസ്ഥാൻ റോയൽസ് ഏഴ് വിക്കറ്റിന് വിജയിച്ചിരുന്നു

പുൽവാമയിൽ പൊലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ പ്രിക്കേറ്റിരുന്ന ഇയാൾ അന്ന് രക്ഷപെട്ടിരുന്നു കോൺഗ്രസ്ക് നീയമസഭാംഗത്തിന്റെ വീട്ടിൽ നിന്നും ആയുധങ്ങൾ ്ട്രിയ്ട്ടിയ്ടുത്ത കേസിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്